ചർച്ചകളുടെ സമയം അവസാനിച്ചതായി പുൽവാമ ഭീകരാക്രമണം തെളിയിക്കുന്നതായും ഭീകരതയ്ക്കെതിരെ ലോകം കൈകോർക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി

അത്യന്തം ദൌർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസിൽ ര ്പേർ പോലീസ് കസ്റ്റഡിയിൽ

പുൽവാമ ഭീകരാക്രണമത്തിന്റെ മുഷ്യ സൂത്രധാരനെന്ന് സംശയിക്കുന്ന കമ്രാൻ ഖാസിയാണ് കൊല്ലപ്പെട്ട ഭീകരരിൽ ഒരാൾ എന്നാൽ ഇയാളുടെ തിരിച്ചറിയ്യൽ പൂർത്തിയായിട്ടില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഭീകരർ ഒളിച്ചുതാമസിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പുൽവാമ മേഖലയിൽ സേന നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഏറ്റുമുട്ടൽ ഉ പ്രദേശത്ത് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്

ഡൽഹി പോലീസിന്റെ സൈബർ കേന്ദ്രം സൈപാഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കള്ളനോട്ട് തിരിമറികളും അന്താരാഷ്ട്ര സാങ്കേതിക സഹായത്തോടെയുള്ള കള്ളത്തരങ്ങളും കൈകാര്യം ചെയ്യാൻ ് സൈപാഡിന് കഴിയും

പുൽവാമ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ വിരുദ്ധ പ്രകടനങ്ങളും തുടർന്നു ായ അനിഷ്ട സംഭവങ്ങളുമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ നഗരത്തിൽ കർഫ്യൂ പ്രഖ്യാപിക്കാൻ കാരണമായത്

അതിനിടെ ജമ്മുകാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കൂടുതൽ അധ്യായനം നടത്തുന്ന നഗരങ്ങളിൽ ലൈസൺ ഓഫീസർമാരെ നിയമിക്കാൻ സംസ്ഥാന ഭരണകൂടം തീരുമാനിച്ചു ഡൽഹി മീററ്റ് ജയ്പ്പൂർ ഭോപ്പാൽ ഛണ്ഡീഗഡ് അലിഗഡ് ബംഗ്ളൂരു പൂനെ എന്നിവിടങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രശ്നമു ായാൽ ലൈസൺ ഓഫീസറുമായി ബന്ധ്പ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു

ജമ്മുകാശ്മീരിൽ ഭീകരർ സ്ഥാപിച്ചിരുന്ന ഗ്രസ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിനിടെയായിരുന്നു മേജ്ർ ചിത്രേഷ് വീരമൃത്യു വരിച്ചത്

ന്യൂൽഡിഹിയിൽ അർജന്റീനിയൻ പ്രസിഡന്റ് മൌറീഷ്യേ മാക്രിയുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്

ആഗോളതലത്തിൽ ഭീകരവാദം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് മുൻപ് അന്താരാഷ്ട്ര സമൂഹം ഇതിനെതിരെ കൈകോർക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കാർഷിക മേഖലയിൽ ലോകത്തിന്റെതന്നെ പ്രധാന ഊർജ്ജ സോത്രസ്സാണ് അർജന്റീനയെന്നും ഭക്ഷ്യസുരക്ഷാവിഷയത്തിൽ അർജന്റീനിയുമായുള്ള പങ്കാളിത്തം ഇന്ത്യ അങ്ങേയറ്റം വിലമതിയ്ക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു

വിവിധ മേഖലകളിൽ കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കാൻ സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്താനും കൂടുതൽ സാധ്യതയു െന്നും പ്രധാനമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി

പ്രതിരോധം വിനോദസഞ്ചാരം ഔഷധ നിർമ്മാണ് കൃഷി തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യവെച്ച് പത്ത് ധാരണാ പത്രങ്ങളിലും ഒപ്പുവെച്ചു

മാക്രി നാളെ മുംബൈ സന്ദർശിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്ലാന്റ് തുറന്ന് പ്രവർത്തിക്കാൻ ദേശീയ ഹരിത ട്രിബ്യൂണൽ നൽകിയ അനുമതി നടപ്പാക്കാൻ തമിഴ്നാട് ഗവൺമെന്റിനോട് ആവശ്യപ്പെടണമെന്ന് കാട്ടിയാണ് വേദാന്ത ഗ്രൂപ്പ് സുപ്രീംകോടതിയെ സമീപിച്ചത് അതേസമയം വേദാന്തയ്ക്ക് ഇതേ ആവശ്യവുമായി മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി സ്റ്റെർലൈറ്റ് പ്ലാന്റിനെതിരെ കഴിഞ്ഞവർഷം നടന്ന പ്രക്ഷോഭത്തിനിടെയും ായ പോലീസ് വെടിവെയ്പ്പിൽ സ്വതന്ത്ര അന്വേഷണം നടത്താൻ സിബിഐയ്ക്ക് പരമോന്നത നീതിപീഠം നിർദ്ദേശം നൽകി

വിശദാംശങ്ങളുമായി ഷീജ ഗണേഷ്

വിവിധ പാസ്പോർട്ടുകളിൽ വ്യത്യസ്ത വിശദാംശങ്ങളാണ് അദ്ദേഹത്തിന്റെതായി പാകിസ്ഥാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജാദവിനെതിരെ അന്താരാഷ്ട്രതലത്തിൽ പാകിസ്ഥാൻ തെറ്റായ പ്രചരണം നടത്തി ഇന്ത്യയ്ക്കെതിരായി വ്യാജപ്രചരണം നടത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ പക്ഷേ വിലപോയില്ല

അറസ്റ്റിലായ ജാവദിനെ സംബന്ധിച്ചോ കേസ് സംബന്ധിച്ചോ യാതൊരു വിശദാശങ്ങളും ഇന്ത്യയ്ക്ക് ലഭ്യമാക്കിയില്ല

പാകിസ്ഥാൻ ജാദവിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന കുറ്റങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇത് സംബന്ധിച്ച് യാതൊരു തെളിവുകളും ഹാജരാക്കാൻ ഇസ്ലാമാബാദിന് കഴിഞ്ഞിട്ടില്ലെന്നും ശ്രീ സാൽവേ വാദിച്ചു

പാകിസ്ഥാൻ സൈനിക കോടതി ചാരവൃത്തി ആരോപിച്ച് കുൽഭൂഷൻ ജാദവിനെ വധശിക്ഷ വിധിച്ചിരുന്നു ഇതിനെതിരെ ഇന്ത്യ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുകയും കേസ് തീർപ്പാക്കുന്നതുവരെ വധശിക്ഷ നടപ്പാക്കരുതെന്നും കോടതിയുടെ പത്തംഗ ബഞ്ച് ഉത്തരവിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഉൌർജ്ജിതമായ അന്വേഷണം നടത്തി പ്രതികളെ മുഴ്ചുവൻ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാൻ സംസ്ഥാന പോലീസ് മേധാവിയ്ക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രിയുട്ടു ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

അതിനിടെ സംഭവത്തിൽ പ്രപ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താലിനെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസ്സെടുത്തു മുൻ കൂർ നോട്ടീസ് നൽകാതെ ഹർത്താൽ പ്രഖ്യാപിച്ചതിനെതിരെയാണ് കോടതി നടപടി